പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ആറേമുക്കാൽ ലക്ഷം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേയ്ക്ക് മാറ്റി ജനജീവിതം സാധാരണ നിലയിലേയ്ക്ക്

തിരഞ്ഞെടുക്കാനുള്ള അഭിമുഖം ഇന്ന്

പ്രളയക്കെടുതികളിൽ മരണമടഞ്ഞവരുടെ ആശ്രിത്ർക്ക് എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു

്രകഴിഞ്ഞ ലോക്സഭാതെരഞ്ഞെടുപ്പ് രാജ്യത്തെ ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്ക്കാട്ടത്തിനായുള്ള മത്സരമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞുക ്ൽജ്യത്ത് നിലനിന്നിരുന്ന നിരാശ പ്രതീക്ഷയിലേക്ക് വഴിമാറിയുമ്പൂർഷമാണിത് പുരോഗതിക്ക് ഭീഷണിയായി നിലനിൽക്കുന്ന അഴിമതിക്കും കുള്ളപ്പണത്തിനുമെതിരായ പോരാട്ടം തുടരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയ്ക്ക് അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ്ഘടനയായി വളരാനാകും ഭീകരവാദം മനുഷ്യരാശിയ്ക്ക് എതിരെയുള്ള ആക്രമണമാണെന്ന് പറഞ്ഞ ശ്രീ മോദി ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നറിയിച്ചു ലോകരാഷ്ട്രങ്ങൾ ഭീകരവാദത്തിനെതിരെ കൈകോർക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ജനങ്ങൾ ഡിജിറ്റൽ പണമിടപാടിലേക്ക് തിരിയണം പ്ലാസ്റ്റിക് കൃാരിബാഗ് ബഹിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെകുറിച്ചും ശ്രീ

മൂന്ന് സായുധസേനകളെയും കാര്യക്ഷമമായി ഏകോപിപ്പിക്കുന്നതിനായി സായുധസേനാ തലവനെ നിയമിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു

ശ്രീനഗറിലെ ഷേർ എ കശ്മീർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രധാന ചടങ്ങിൽ ഗവർണ്ണർ സത്യപാൽ മാലിക് പതാക ഉയർത്തി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്ത് നടപ്പാക്കിയ പുതിയ നയം ചരിത്രപരമായ മാറ്റമാണെന്ന് ചടങ്ങിൽ ഗവർണ്ണർ പറഞ്ഞു ജമ്മുവിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് വികസനത്തിനുളള പുതിയ ദിശാബോധം ലഭിച്ചതായും ശ്രീ സത്യപാൽ മാലിക് കൂട്ടിച്ചേർത്തു

താഴ്വരയിലെ മറ്റു പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു ഗവൺമെന്റ് ജീവനക്കാർ ജോലിക്ക് എത്താൻ അറിയിച്ചിട്ടുണ്ട്

ഇൻഡ്യയുടെ സ്വാതന്ത്യദിനം ആഘോഷിക്കാൻ വാഷിംങ്ടണിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ ഇൻഡ്യ ഹൌസിൽ ഒത്തുകൂടിയ ഇൻഡ്യൻ സമൂഹ്ഹത്തെ അഭിസംബോധന ചെയ്യവേയാണ് ശ്രീ

കൂടാതെ ഇസ്രായേലി പ്രധാനമന്ത്രി ബഞ്ചമിൻ നെതന്യാഹു വീഡിയോ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രിക്ക് നമസ്തെ പറഞ്ഞു

മൂന്നു തവണ പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി

വാജ്പേയി രണ്ടാം തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി

വെങ്കയ്യനായിഡു ഇന്ന് പശ്ചിമബംഗാളിലെത്തും

ക്കൊൽക്കുത്തയിൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് പ്സർഷ്ടിപ്പിക്കുന്ന പരിപാടിയിൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഏ

വെങ്കയ്യനായിഡു അനാച്ഛാദനം ചെയ്യും

ക്ക്സ്ട് ്യെദ്യൂരപ്പ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും സംസ്ഥാനത്തെ വികസന വിഷയങ്ങൾ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് ശ്രീ യെദ്യൂരപ്പ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു

മേഖലകളിൽ രക്ഷാ ദൂരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാണ് നിലവിൽ സ്ഥിതിഗതികൾ ഏറെക്കുറെ സാധാരണ നിലയിലാണ് കൃഷ്ണ നദിയിലെ ജലനിരപ്പ് അപകടനിലയിൽ നിന്നും താഴ്ന്നിട്ടുണ്ട് അതേസമയം പഞ്ച്ഗംഗ നദി ഇപ്പോഴും അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്

അടുത്ത അഞ്ചു ദിവസങ്ങളിൽ മഴ താരതമ്യേന കുറവായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധൃതയുള്ള കണ്ണൂർ കാസർഗോഡ് ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലെർട്ട് പ്രഖ്യാപിച്ചു

ഉരുൾപ്പൊട്ടൽ വൻദൂരന്തം വിതച്ച മലപ്പുറം കവളപ്പാറയിൽ നിന്ന് ഏഴ് മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെത്തി വയനാട്ടിലെ പുത്തുമലയിലും കാണാതായവർക്കായുളള തെരച്ചിൽ തുടരുകയാണ്

ഇവർ ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങും യൂറോപ്യൻ യൂണിയൻ ഉപരോധം മറികടന്ന് സിറിയയിലേക്ക് എണ്ണ കടത്താൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് ബ്രിട്ടണ്ട് കപ്പൽ പിടിച്ചെടുത്തത് ഇന്നലെ വൈകുന്നേരം പുറപ്പെടുവിച്ച ടിറ്റർ സ്ക്കുള്ളത്തിൽ വിദേശകാരൃ സഹമന്ത്രി വി

എൽ സി

ദിമാപൂർ ജില്ലയിലെ ചുമൌകേഡിമയിൽ പോലീസ് ട്രെയിനിംഗ് സ്കൂളിൽ ആരംഭിച്ച കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഉപമുഖ്യമന്ത്രി വൈ

സൈബർ കുറ്റകൃതൃങ്ങൾ പോലീസിന് കടുത്ത വെല്ലുവിളിയാണെന്നും ഇതിനെ പ്രതിരോധിക്കാൻ സേനയെ ആധുനികവൽക്കരിക്കേണ്ടത് അത്യാവശൃമാണെന്നും ശ്രീ

ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും കൂട്ടികളും കൂടുതലായി ഇരയാകുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ്നിന്ന് രക്ഷിക്കാൻ പോലീസ് സേനയെ സജ്ജമാക്കേണ്ടതുണ്ടെന്നും ശ്രീ പാറ്റൺ എടുത്തുപറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ശ്രാവണപൂർണിമ ദിനമായ ഇന്നലെ ഇരുപതോളം പൂജാരികൾ ശിവലിംഗത്തിൽ പരമ്പരാഗത പൂജകൾ നടത്തി

നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ആറുപേരുടെ ചുരുക്കപ്പട്ടികയിൽ നിന്നാണ് മുഖ്യ പരിശീലകനെ കണ്ടെത്തുന്നത്

ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെ ഫോണിൽ ബന്ധപ്പെട്ട് പ്രക്ഷോഭകരുമായി സംസാരിക്കണമെന്ന ട്രംപിന്റെ അഭ്യർത്ഥനയേയും ഹോങ്കോങ്ങിൽ ടിയാൻമെൻ സ്ക്വയർ ആവർത്തിക്കരുതെന്ന അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടണിന്റെ പ്രസ്താവനയ്ക്കും മറുപടിയായാണ് ചൈനയുടെ പ്രതികരണം

തോണ്ടയ്മാൻ ആറാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത്